തിങ്കളാഴ്ച തുറക്കും

പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തു

സംസ്ഥാനങ്ങൾ ഈ മാസം അഞ്ച് മുതൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മൂലം ഒരുതരത്തിലുമുളള ആക്രമ സംഭവങ്ങൾ ഉണ്ടായില്ലെന്നും ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജമ്മുകശ്മീരിലും ലഡാക്കിലും സ്വാതന്ത്ര്യദിനം ആവേശകരമായാണ് ആഘോഷിക്കപ്പെട്ടത്

ന്യൂയോർക്കിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശ്ന്ദേഹം

ഷിംല കരാർ നടപ്പാക്കാൻ ഇന്ത്യ കാണിക്കുന്ന പ്രതിബദ്ധത പാക്കിസ്ഥാനും കാണിക്കണം ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി നീക്കിയത് ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമാണ് ഇക്കാര്യം പാകിസ്ഥാൻ മനസ്സിലാക്കണം ഇതിൽ ഒരു തരത്തിലുമുള്ള വിദേശനയ ലംഘനമില്ല കശ്മീരിലെ സ്ഥിതി ആശങ്കാജനകമാണെന്ന് വരുത്തിത്തീർക്കാനാണ് ചിലരുടെ ശ്രമമെന്നും അദ്ദേഹം പാകിസ്ഥാനെ പരോക്ഷമായി വിമർശിച്ചു ഇന്ത്യയുമായി വിശുദ്ധ യുദ്ധത്തിന് കശ്മീരിലെ നേതാക്കളെ ഈ രാജ്യം പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പാകിസ്ഥാൻ ഇടപെടെണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ജമ്മുവിലും ലഡാക്കിലും കെട്ടുറപ്പുള്ള ഭരണവും സുസ്ഥിര വികസനവും ഉറപ്പുവരുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം മേഖലയിൽ സമാധാനം ഉറപ്പ് വരുത്തേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണെന്നും ശ്രീ അക്ബറുദ്ദീൻ പറഞ്ഞു

പാകിസ്ഥാനിൽ ഏറ്റവും പ്രചാരമുള്ള ഡോൺ ദിനപ്പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ചൈന പിന്തുണച്ചാലും പൊതുവികാരം പാകിസ്ഥാന് എതിരാകും മറ്റ് സ്ഥിരാംഗങ്ങളായ ബ്രിട്ടൺ ഫ്രാൻസ് റഷ്യ അമേരിക്ക എന്നീ രാജ്യങ്ങൾ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന നിലപാടുകാരാണ്

രാജസ്ഥാനിലെ ബോധ്പൂരിനെയും പാകിസ്ഥാനിലെ കറാച്ചിയേയും ബന്ധിപ്പിക്കുന്നതാണ് ഈ ട്രെയിൻ സർവ്വീസ് ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സർവ്വീസ് നടത്തില്ലെന്ന് പശ്ചിമ റെയിൽ വക്താവ് ്അഭയ്ശർമ്മ അറിയിച്ചു

സേവാഗ്രാമിലെ മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സുവർണ്ണജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യും മഹാരാഷ്ട്ര ഗവർണ്ണർ വിദ്യാസാഗർ റാവു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും

അയൽക്കാരൻ ആദ്യമെന്ന നയത്തിന്റെ ഭാഗമായി ഇന്ത്യ ഭൂട്ടാൻ ഉഭയകക്ഷി സഹകരണം പ്രധാനപ്പെട്ട നാഴികക്കല്ലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാൻ സന്ദർശനത്തിന് മുന്നോടിയായുള്ള പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഭൂട്ടാൻ രാജാവ് ദ്രുക്ക് ഗൃൽപോയുമായും പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ ഭൂട്ടാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉതകുമെന്ന് ഭൂട്ടാനിലെ ഇന്ത്യൻ അംബാസിഡർ രുചിരാ കാംബോജ് ആകാശവാണിയോട് പറഞ്ഞു ഇരു രാജ്യങ്ങളും പത്ത് കരാറുകളിൽ ഒപ്പിടുമെന്നും മങ്കേദിച്ച് ഉൾപ്പെടെ പത്ത് പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും അവർ പറഞ്ഞു

ഈ വർഷം ഒക്ടോബർ രണ്ട് മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളെ നിരോധിക്കുമെന്ന് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു മിക്ക സംസ്ഥാനങ്ങളും അന്തരീക്ഷത്തിന് ഹാനികരമാകുന്ന ഇത്തരം പ്ലാസ്റ്റിക് വസ്തുക്കളെ ഇതിനകം തന്നെ നിരോധിച്ചു കഴിഞ്ഞു

പൊതുമേഖലയിൽ ആയുധനിർമ്മാണ ഫാക്ടറികൾ തുടങ്ങാനുള്ള നിർദ്ദേശം കേന്ദ്രഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ട് ഗവൺമെന്റിന്റെ പൂർണ്ണനിയന്ത്രണത്തിലാ യിരിക്കും ഇത് ഇത് സംബന്ധിച്ച പ്രചരണങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നവയാണെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു

ക്രൂഡ് ഓയിലോ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളോ പോലെ കാണാനാവുന്ന ഉൽപ്പന്നമല്ല സ്വർണ്ണം ഇറക്കുമതി ചെയ്യുന്ന സ്വർണ്ണം ഇവിടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആക്കി മാറ്റുകയാണ് സ്വർണ്ണാഭരണ കയറ്റുമതിയ്ക്ക് ഗവൺമെന്റ് കസ്റ്റംസ് നികുതി ഏർപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രി അഹമ്മദാബാദിൽ അറിയിച്ചു

സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് മഴ കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

മഴക്കെടുതിയെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ വീടുകളിലേക്ക് മടങ്ങിതുടങ്ങിയിട്ടുണ്ട്

ഏറ്റവും കൂടുതൽ പേർ കൃാമ്പുകളിൽ കഴിയുന്നത് തൃശൂർ ജില്ലയിലാണ്

ഉരുൾപ്പൊട്ടൾ ദുരന്തം വിതച്ച മലപ്പുറം കവളപ്പാറയിൽ നിന്ന് ഇന്നലെ അഞ്ച് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു

ഗ്രൌണ്ട് പെനി ട്രേറ്റിംഗ് ദ്യ്ക്ക് ഹൈദരാബാദിൽ നിന്നും എത്തിക്കുമെന്ന് മന്ത്രി എ കെ ശശീപ്രദ്ധൂം ്അറിയിച്ചു

കൂടുതൽ ആവശ്യപ്പെട്ടാൽ അത് പരിഗണിക്കും പുനരധിവാസത്തിന് കേരളത്തിന് പൂർണ്ണ പിന്തുണ നൽകും കേരളം മതി എന്ന് പറയുന്നത് വരെ ദേശീയ ദുരന്ത നിവാരണ സേന സംസ്ഥാനത്ത് തുടരുമെന്നും മന്ത്രി അറിയിച്ചു

ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ

പ്രളയബാധിത ജില്ലകളിലെ ആശുപത്രികൾ ദുരിതാശ്ചാസ ക്യാമ്പുകൾ തിരഞ്ഞെടുക്കപ്പെട്ട പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേകം ഡോക്സി ബൂത്തുകൾ സ്ഥാപിച്ചാണ് ഗുളികകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നത്

മുപ്പത് ഏക്കറിലധികം സ്ഥലം ഒലിച്ചുപോയി

ഒമ്പതു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ജമ്മു കശ്മീർ ഗവർണർ സത്യപാൽ മാലിക് ഉദ്ഘാടനം ചെയ്യും

കമ്പോളത്തിന്റെ ആവശ്യകത അറിഞ്ഞ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ യോഗത്തിൽ ധാരണയായി ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രുപാനി മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് കേന്ദ്ര കാർഷിക മന്ത്രി നരേന്ദ്രസിംഗ് തോമർ തുടങ്ങിയവർ പങ്കെടുത്തു

ജി ഫ്യൂവൽ സ്റ്റേഷൻ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ അന്തരീക്ഷമലിനീകരണം കുറയ്ക്കുന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി

ഇതിനുള്ള നടപടികൾ കെ ബി

എസ് സ്വീകരിച്ചു വരുന്നതിനായി ചെയർമാൻ ആന്റ് മാനേജിങ്ങ് ഡയറക്ടർ കാർത്തിക് അറിയിച്ചു

മുരളീധരന്റെ ഇടപെടലിലൂടെ മലയാളി വിദ്യാർത്ഥിനിക്ക് ജർമനിയിൽ നഷ്ടപ്പെട്ട പാസ്പോർട്ടിന് പകരം പുതിയ പാസ്പോർട്ട് ലഭിച്ചു ഉന്നത വൈദ്യശാസ്ത്രപഠനത്തിനായി അമേരിക്കയിൽനിന്ന് ജർമനിയിലെത്തിയ വിദ്യാർത്ഥിക്കാണ് പാസ്പോർട്ട് നഷ്ടമായത്